മുൻപന്തിയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറസിനെതിരായ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി

ശതമാനമെന്നും മൂന്നു ലക്ഷത്തിലുള്ളികം പേർ കോവിഡിനെ അതിജീവിച്ചതായും ്കേന്ദ്ര ആരോഗ്യമന്ത്രി

വൈറസിനെതിരെ രാജ്യം നടത്തിയ പോരാട്ടം കണ്ടുവെന്ന് ഫലം ശ്രീ മോദി പറഞ്ഞു

ജോസഫ് മാർതോമ മെത്രാപ്പൊലീത്തയുടെ നവതി ആഘോഷച്ചടങ്ങ് വീഡിയോ കോൺഫറൻസിംഗി്ലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകാൻ മാർത്തോമ സഭയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു

ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് ശ്രീ നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൈകൊണ്ട കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുടെ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ വൈറസിനെതിരായ പോരാട്ടം അവസാനിച്ചിട്ടില്ല കൂടുതൽ ജാഗ്രത ഇനിയും ആവശ്യമാണെന്ന് ശ്രീ മോദി പറഞ്ഞു മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക ആൾക്കൂട്ടം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്

അനാരോഗ്യകരമായ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

മഹാരാഷ്ട്ര തമിഴ്നാട് ഡൽഹി തെലങ്കാന ഉത്തർപ്രദേശ് ആന്ധ്രപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവയാണ് കോവിഡ് ഗുരുതരമായി ബാധിച്ച സംസ്ഥാനങ്ങൾ

ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും കേന്ദ്ര സംഘം സന്ദർശനം നടത്തുന്നുണ്ട് രാജ്യത്തെ ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൌകരൃം മികച്ചതാണെന്നും യോഗം വിലയിരുത്തി ഇത് പതിനേഴാമത് തവണയാണ് കോവിഡ് വ്യാപനം സംബന്ധിച്ച് വിലയിരുത്തുന്നതിനായി ഉന്നതതല സംഘം യോഗം ചേരുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യോമയാന മന്ത്രി ഹർദീപ് പുരി കേന്ദ്ര സഹമന്ത്രി അശ്വനികുമാർ ചൌബേ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

പാലക്കാട് ജില്ലയിലെ പുരളിയാണ് പുതിയ ഹോട്ട്സ്പോട്ട്

എന്നാൽ രാത്രി ഒൻപതു മുതൽ പുലർച്ചെ അഞ്ചുവരെയുള്ള രാത്രി കർഫ്യൂ ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും തുടരുമെന്നും ഉത്തരവിൽ വൃക്തമാക്കുന്നു

നിലവിൽ നാൽപ്പത് ലക്ഷത്തിലധികം പേരാണ് വിവിധ രാജ്യങ്ങളിലായി ചികിത്സയിൽ ഉളളത്

റഷ്യയിൽ ഏഴായിരത്തോളം പേർക്കാണ് പ്തുതായി രോഗബാധ സ്ഥിരീകരിച്ചത്

ബൊളീവിയ ഒമാൻ ഫിലിപ്പെൻസ് കുവൈറ്റ് ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ രോഗവൃാപനം വർദ്ധിക്കുന്നുണ്ട്

സഹകരണ ബാങ്കുകളെയും ആർ

ഐ

പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും ദീർഘകാല കാർഷിക വായ്പകൾ നൽകുന്ന സഹകരണ സംഘങ്ങൾക്കും പുതിയ നിയമം ബാധകമായിരിക്കില്ല